ഇന്നലെയും പ്രതിദിന രോഗബാധ നാല് ലക്ഷം കടന്നു

പുതുക്കി സ്വകാര്യ ആശുപത്രികളിലും കൊവിഡ് ഒ പി

തുടക്കമാകും

തമിഴ്നാട്ടിൽ കഴിഞ്ഞയാഴ്ച പുതിയ കോവിഡ് കേസുകളിൽ വലിയ വർധനവാണുണ്ടായത്

കോവിഡ് സാഹചരൃം കാരണം മുഖ്യമന്ത്രി എം

സ്റ്റാലിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഇന്നലെ യോഗം ചേർന്ന് രോഗ നിയന്ത്രണ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്തു

ഹരിയാനയിൽ നേരത്തെ ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ ഇന്ന് രാവിലെ അഞ്ചിന് അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ രോഗ വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരാൻ ഹരിയാന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനിക്കുകയായിരുന്നു

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുന്ന ചടങ്ങിൽ സമീപ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ബി ജെ പി നേതാക്കളും പങ്കെടുക്കും ഗുവ്പാഹത്തിയിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് ്റ്റിമന്തയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്

ക്രിക്കറ്റ് താരം മ്നോജ് തിവാരി വിരമിച്ച ഐ

എസ് ഉദ്യോഗസ്ഥൻ ഹുമയൂൺ കബിർ നടി ബിർബാഹ ഹാൻസ്ഡ തുടങ്ങി പ്രമുഖരുൾപ്പെടെ നിരവധി പുതുമുഖങ്ങളാണ് മന്ത്രിസഭയിലുള്ളത്

മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഡൽഹി ഹരിയാന തെലങ്കാന രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലാണ് റെയിൽവേ ദ്രവ മെഡിക്കൽ ഓക്സിജൻ എത്തിച്ചത്

ഒ മരുന്നിന്റെ അടിയന്തര ഉപയോഗത്തിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകി കോവിഡ് രോഗബാധിതരിൽ മരുന്ന് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്

രോഗമുക്തി ത്വരിതപ്പെടുത്തുന്നതിനും മെഡിക്കൽ ഓക്സിജൻ ആശ്രയത്വം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നതാണ് ഈ മരുന്ന് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്

കോവിഡ് വ്യാപനം തടയ്യുന്നത് ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് തുക് വിനിയോഗിക്കാം എന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു

വീട്ടിലോ സർക്കാർ ഐസോലേഷൻ സെന്ററുകളിലോ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാകുമെന്ന് ആയുഷ് മന്ത്രാലയം വ്യക്തമാക്കി

നിലവിൽ രാജ്യത്ത് മുപ്പത്തിയേഴര ലക്ഷത്തോളം പേരാണ് ക്ലോവിഡ് ചികിത്സയിലുള്ളത്

ഫ്രാൻസിലെ ബോർഡോയിൽ നിന്നും രണ്ട് ഓക്സിജൻ ജനറേറ്ററുകൾ ഐ

ഹിന്ദാനിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് രണ്ടും ഹൈദരാബാദിൽ നിന്നും ഭൂവനേശ്വറിലേക്ക് നാലും ക്രയോജനിക് ഓക്സിജൻ കണ്ടെയ്നറുകളുമാണ് വ്യോമസേന എത്തിച്ചത്

ടി പരിധിയിൽ നിന്ന് ഒഴിവാക്കിയാൽ വിപണി വില അനിയന്ത്രിതമായി ഉയരാൻ സാധൃത കണക്കിലെടുത്താണ് നടപടി കോവിഡ് അനുബന്ധ ചികിത്സാ സാമഗ്രികൾക്ക് ജി

ടി ഒഴിവാക്കണമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കോൺഗ്രസ് അദ്ധ്യക്ഷ സോണിയാ ഗാന്ധിയും ആവശ്യമുന്നയിച്ചിരുന്നു നിലവിൽ കോവിഡ് ചികിത്സാ സാമഗ്രികളുടെ ഇറക്കുമതിയിൽ കസ്റ്റംസ് തീരുവ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്

പി കൾ തുടങ്ങണമെന്നും സർക്കാർ ആശുപത്രികൾ ക്കോപ്പിഡ് ചികിത്സയിൽ കേന്ദ്രീകരിക്കണമെന്നും പ്പുതിയ മാർഗ്ഗ നിർദേശത്തിൽ പറയുന്നു ഗ്രാമപ്രദേശങ്ങളിൽ അടക്കം കോവിഡ് ചികിത്സ എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യം താലൂക്ക് ആശുപത്രികളിൽ ഓക്സിജൻ കിടക്കകൾ ഒരുക്കും

ടോക്യോ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ പരിശീലന മത്സരങ്ങളിൽ പങ്കെടുക്കാനായി അമേരിക്കൻ സ്പ്രിന്റർ ജസ്റ്റിൻ ഗാൾട്ടിൻ ഉൾപ്പെടെ നൂറുകണക്കിന് അത്ലറ്റുകളാണ് ഇന്നലെ എത്തിയത്

പരമ്പരയിൽ മുൻനിര താരങ്ങൾക്ക് പകരം പുതുമുഖ താരങ്ങൾക്കാകും അവസരം നൽകുന്നതെന്ന് സൌരവ് ഗാംഗുലി അറിയിച്ചു

ഇംഗ്ലണ്ടിൽ നടക്കുന്ന ക്രിക്കറ്റ് പരമ്പരയുടെ തയ്യാറെടുപ്പിലാണ് കോഹ്ലിയും രോഹിത് ശർമ്മയുമടക്കമുള്ള മുൻനിര താരങ്ങൾ

പിയും പ്രമുഖ ശിൽപ്പിയുമായ രഗുനാഥ് മൊഹപത്രയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം

ക്ടോവിഡ് ചികിത്സയിലിരിക്കെ ഭുവനേശ്വറിൽ എയിംസ് ആശുപത്രിയിലായിരുന്നു അന്തൃം

കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ഏഴ് കിലോഗ്രാം വരുന്ന യുറേനിയവുമായി രണ്ടുപേരെ ഭീകര വിരുദ്ധ സ്ക്വാഡ് മുംബൈയിൽ അറസ്റ്റ് ചെയ്തത്